ഗുവഹത്തി ഐ ഐ

വീഡിയോ കോൺഫറൻസിലൂടെയാണ് പരിപാടി ബിടെക് എം

അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേഷ് പ്രൊഖ്രിയാൽ നിഷാങ്ക് സഹമന്ത്രി സഞ്ജയ് ദോത്രെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്

സമകാലീന യാഥാർഥ്യങ്ങളെയും വെല്ലുവിളികളെയും അഭിമുഖീകരിക്കാൻ മനുഷ്യക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ബഹുമുഖ മാറ്റങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കാലാവസ്ഥ വൃതിയാനം വികസനം അസമത്വം തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചയും പ്രവർത്തനവും വേണ്ട സമയമാണിത് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാനും വികസനം ഉറപ്പാക്കാനും ഇടപെടലുകൾ നടത്തണം

ഇന്ന് ലോകം മികച്ചതായതിനു പിന്നിൽ ഐക്യരാഷ്ട്ര സഭയുടെ പ്രയത്നമാണെന്ന് അദ്ദേഹം പറഞ്ഞു

മുഴുവൻ ലോകത്തിന്റെയും ക്ഷേമത്തിനായി മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ഥാപനം രൂപീകരിക്കപ്പെട്ടു

ലോക സമാധാനത്തിനായി മറ്റു രാഷ്ട്രങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മാർ അപമര്യാദയായി പെരുമാറിയതിൽ പ്രതിഷേധിച്ച് ഉപവാസം നടത്തുമെന്ന് ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ

സഭയുടെ അന്ത്സ്സിനേൽപ്പിച്ച കളങ്കമാണ് എം

സസ്പെൻഷൻ റദ്ദാക്കുകയും കർഷകരുമായി ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നതുവരെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം രാജ്യസഭാ നടപടികൾ ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് അറിയിച്ചു തുടർന്ന് കോൺഗ്രസ് ഇടത് ടിഎംസി ആം ആദ്മി പാർട്ടി തുടങ്ങിയ അംഗങ്ങൾ സഭയിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോയി

മാർക്ക് ചായ വിതരണം ചെയ്ത രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻഷ് നാരായണിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രശംസ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ച പുറത്താക്കപ്പെട്ട സഭാംഗങ്ങൾക്കാണ് രാജ്യസഭാ ഉപാധ്യക്ഷൻ ചായ നൽകിയത് ബിഹാറിൽ നിന്നുള്ള എം

യും രാജ്യസഭാ ഉപാധ്യക്ഷനുമായ ഹരിവൻഷിന്റെ പ്രവർത്തി എല്ലാവർക്കും പ്രചോദനമാണെന്ന് ശ്രീ മോദി അഭിപ്രായപ്പെട്ടു

ബ്രസീൽ അർജന്റീന മെക്സിക്കോ ഫ്രാൻസ് റഷ്യ തുടങ്ങിയവയാണ് രോഗബാധ കൂടുതലുള്ള മറ്റ് രാജ്യങ്ങൾ

സൈനിക പിന്തുണയുള്ള രാജ്യത്തെ പ്രസാന പ്രതിപക്ഷമായ യു എസ് ഡി

നവംബർ എട്ടിന് നടത്താനിരുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണവും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ടീയപാർട്ടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്

കമ്മീഷന്റെ ബിഹാർ സന്ദർശനത്തിന് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ലെന്നും കമീഷൻ അറിയിച്ചു

കഴിഞ്ഞ ആറ് വർഷമായി രാജ്യത്തെ ഭവനരഹിതരായ എല്ലാവർക്കും അടിസ്ഥാന സൌകര്യങ്ങളോട് കൂടിയ വീട് ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ

രാത്രിയോടെ നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു

കെട്ടിട ഉടമയ്ക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്

എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്ക്ക്ക്ടൂട് കണ്ണൂർ കാസറഗോഡ് ജില്ലകളിലാണ് യെല്ലൊ അലർട്ട്

മീ

യുഎസ് ഓപ്പണിൽ നിന്ന് ഈ മാസം അയോഗൃനാക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം കളിക്കുന്ന ആദ്യ മത്സരമാണിത് അതിനിടെ ഇറ്റാലിയൻ ഓപ്പൺ വനിതാവിഭാഗത്തിൽ ചെക്ക് താരം കരോളിന പ്ലിസ്കൊവ പരിക്ക് മൂലം പിൻമാറിയതിനാൽ റൊമാനിയയുടെ സിമോണ ഹാലെപ് ജേതാവായി ഹാലെപ്പിന്റെ ആദ്യ ഇറ്റാലിയൻ ഓപ്പൺ കിരീടമാണിത്

ഷാർജയിൽ ഇന്നു നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടും

ഐക്യരാഷ്ട്രസംഘന മുഖേന ഇറാന് ഉപരോധം ഏർപ്പെട്ടുത്താനുള്ള ശ്രമത്തിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച് അമേരിക്കയുടെ പ്രഖ്യാപനം യുഎൻ ആയുധ നിരോധനം പ്രെർഘിച്ചതിനാണ് ഉപരോധം ഏർപ്പെടുത്തുന്നതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു